പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ ഉദ്ഘാടനം ചെയ്യും

കൊൽക്കത്തയിൽ തുടക്കം കുറിച്ചു

ഭൂരിപക്ഷത്തോടെ വ്യൂണ്ട്ടുർ തെരഞ്ഞെടുക്കപ്പെട്ടു

ആഘോഷിക്കുന്നു

ഇന്ന് പൊളിക്കും

മഹാരാഷ്ട്ര മുന്നിൽ

ഇന്നലെയാണ് പ്രധാനമന്ത്രി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി കൊൽക്കത്തയിൽ എത്തിയത് വിശദാംശങ്ങളുമായി രഞ്ജിത്ത്

പൈതൃക വിനോദസഞ്ചാരത്തിന്റെ ലോക്ടോത്തര് കേന്ദ്രമായി ഇന്ത്യയെ മാറ്റണമെന്ന് പ്രധാനമന്ത്രി ഇന്നലെ കെഴ്ൽക്ക്ത്തയിൽ പറഞ്ഞു

ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെറിട്ടേജിനായി കേന്ദ്രം പ്രത്യേക പദ്ധതി തയ്യാറാക്കുന്നുണ്ട് ഇതിനായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ലോകത്തിലെ തന്നെ പുരാതന മ്യൂസിയമായ കൊൽക്കത്ത മ്യൂസിയത്തിൽ നിന്നും ആരംഭിക്കും കൊൽക്കത്തിയിലെ പഴയ കെട്ടിട സമുച്ചയങ്ങളായ കറൻസി ബിൽഡിങ് ബെൽവെദെരെ ഹൌസ് വിക്ടോറിയ മെമ്മോറിയ ഹാൾ എന്നിവ നവീകരണത്തിനു ശേഷം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു രാജ്യത്തെ അഞ്ച് പ്രധാന മ്യൂസിയങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ നവീകരിക്കാനുള്ള പദ്ധതി ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സമ്പന്നമായ സംസ്ക്കാരവും പൈതൃകവുമാണ് ബംഗാളിനുള്ളതെന്നും ഈ സംസ്ക്കാരമാണ് നമ്മെ ഒന്നിപ്പിക്കുന്നതെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

മാതൃഭാഷയെ ചൊല്ലി അപകർഷതാ ബോധംഉണ്ടാകരുതെന്നും ശ്രീ അമിത് ഷാ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടു

ദേശീയ പൌരത്വ നിയമത്തിന് പിന്തുണയേകുന്നതിനായി സംഘടിപ്പിക്കുന്ന റാലിയിൽ അദ്ദേഹം പ്രസംഗിക്കും

ജഡ്ജിമാരുടെ രണ്ട് ദിവസത്തെ സമ്മേളനം ബംഗളൂരുവിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു നിയമ സംവിധാനത്തിന്റെ ഘടനാപരമായ പുനക്രമീകരണവും നിയമ മേഖലയിലെ നൈപുണ്യ വികസനവും എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രൊഫഷണലിസവും നിയമത്തിലുള്ള അറിവുമാണ് നിലവാരം മെച്ചപ്പെടുത്താനുള്ള മാർഗ്ഗങ്ങൾ കീഴ്കോടതികളിലെ ജഡ്ജിമാർക്കായി മൂട്ട് കോർട്ട് പോലുള്ള പരിശീലനം പരിപാടികളും ആവശ്യമാണ് മധ്യസ്സ്മൃതയും കൌൺസിലിംഗും പോലുള്ള ഉപാധികളിലൂടെ ജില്ലാ ക്ട്രോട്തികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ പരിഹരിക്കാമെന്നും പൂശ്ീ

ജി ഇന്ധന സ്റ്റേഷൻ കേന്ദ്ര ഗതാഗതമന്ത്രി നിതിൻ ഗഡ്കരി ഉദ്ഘാടനം ചെയ്തു വാദി മേഖലയിൽ ആരംഭിച്ച സി

ജി സ്റ്റേഷനിൽ നിന്നാണ് നാഗ്പൂർ മുൻസിപ്പൽ കോർപ്പറേഷൻ ബസുകൾക്ക് ഇന്ധനം നൽകുന്നത് ഡീസലിൽ നിന്നും സി

കാർഷിക അവശിഷ്ടങ്ങളിൽ നിന്നും ജൈവ ഇന്ധനം വികസിപ്പിച്ചെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

ഇന്ത്യയുടെ സമുന്നതനായ ആത്മീയ നേതാവായിരുന്ന സ്വാമി വിവേകാനന്ദനാണ് ഇന്ത്യൻ ആധ്യാത്മികതയും വേദാന്തവും യോഗയും ലോകത്തിന് പരിചയപ്പെടുത്തിയത്

ഇന്ന് രാവ്ലെ ഹൌറയിലെ ബേലൂർ മഠത്തിൽ നടക്കുന്ന പരിപാടിയിലും പ്രധാനമന്ത്രി സംബന്ധിക്കും

സ്വാമി വിവേകനാന്ദന്റെ ജന്മദിനമായ ഇന്ന് കേന്ദ്ര കായിക യുവജനക്ഷേമ മന്ത്രി കിരൺ റിജുജുവും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിതൃനാഥും ചേർന്ന് ഉദ്ഘാടനം നിർവ്വഹിക്കും

കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത് വോയ്സ് രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിൽ ിയിന്നാണ് ഏറിയപങ്കും ഉരുക്കുഉൽപാദനമെന്ന് കേന്ദ്ര ഉരുക്കു വകുപ്പ് മന്തി ധർമേന്ദ്ര പ്രധാൻ പറഞ്ഞു

സംയോജിത ഉരുക്കു ക്യേന്ദ്മായി മാറ്റി കിഴക്കൻ മേഖലയിലെ ഇരുമ്പ് ഉരുക്കു ഉൽപാദനം വർധിപ്പിക്കുകയാണ് മിഷന്റെ ലക്ഷ്യം അഞ്ചു ലക്ഷം കോടി ഡോളറിന്റെ സമ്പദ് വൃവസ്ഥയായി ഇന്ത്യയെ മാറ്റാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയുടെ ഭാഗം കൂടിയാണിത് പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ മേഖലയിൽ നിരവധി സാധൃതകളുണ്ടെന്നും കേന്ദ്രമന്ത്രി വൃക്തമാക്കി ഉരുക്കു മേഖലയിൽ കിഴക്കൻ മേഖലയെ മുന്നോട്ടു നയിക്കാൻ പര്യാപ്തമാകുന്നതാണ് മിഷൻ പൂർവോദയ എന്നും ശ്രീ ധർമേന്ദ്ര പ്രധാൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ചൈനീസ് പിന്തുണയുള്ള കുമിന്താങ് പാർട്ടിയുടെ ക്യൂ യു വായിരുന്നു സായ് ഇങ് വെന്നിന്റെ എതിരാളി

സ്വാസ്ഥൃ സഖി പദ്ധതിയുടെയും സ്തനാർബുദ നിയന്ത്രണ പദ്ധതിയുടെയും ഉദ്ഘാടനവും മന്ത്രി നിർവ്വഹിച്ചു യശസ്വിനി പദ്ധതിയുടെ കീഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപാ വരെ വായ്പ ലഭ്യമാക്കും

വി പാറ്റിനെക്കുക്കുറിച്ചും സമ്മതിദായകരെ ബോധവത്ക്കരിക്കാനായി തെരുവു ്ത്രീടിക്ങളും സംഘടിപ്പിച്ചു

ഓക്സിജൻ സിലിണ്ടറുകൾ നിറയ്ക്കുന്ന കമ്പനിയിൽ ഉണ്ടായ പൊട്ടിത്തെറിയാണ് ദുരന്തത്തിനു കാരണമായതെന്ന് പോലീസ് അറിയിച്ചു

ഇന്നലെ സ്വീകരിച്ച നടപടി ക്രമീകരണങ്ങളാണ് ഇന്ന് പൊളിക്കുന്ന ഫ്ളാറ്റുകളുടെ കാര്യത്തിലും കൈര്ക്ക്കാള്ളുക കനത്ത സുരക്ഷാ നടപടികളാണ് ഇതുമായി പ്പിസ്പ്പെട്ട് എടുത്തിട്ടുള്ളതെന്ന് അധികൃതർ പറഞ്ഞു ൃജ്നങ്ങളെ ഒഴിപ്പിക്കൽ ഗതാഗത നിയന്ത്രണം തുടങ്ങി ഇന്ന്ല്ലി സ്വീകരിച്ച നടപടികൾ ഇന്നും തുടരും

സംസ്ഥാനത്ത് കാൻസർ ചികിത്സ ലഭ്യമാകുന്ന ആശുപത്രികളെ ഏകോപിപ്പിക്കുന്നതിന് കാൻസർ സ്ട്രാറ്റജി ആക്ഷൻ പ്താനിന്റെ ഭാഗമായാണ് കാൻസർ കെയർ ബോർഡ് സ്ഥാപിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി തിരുവനന്തപുരത്ത് നടന്ന ഉന്നതതലയോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്